കൊറോണ രോഗബാധ തടയാൻ കർശന നിയന്ത്രണങ്ങൾ തുട രുമെന്ന് മന്ത്രി എ കെ ബാലൻ നാലുദിവസംകൊണ്ട് അറുപത്തി മൂന്നര ശതമാനം കുടുംബങ്ങൾ കോവിഡ് സൌജന്യ റേഷൻ വാങ്ങിയതായി മന്ത്രി പി തിലോത്തമൻ യേശുക്രിസ്തുവിന്റെ ജറുസലേം യാത്രയുടെ വിശാസ സ്മരണ യിൽ ഇന്ന് ഓശാന ഞായർ

വൈദ്യുതി വിളക്കുകൾ അണച്ച് ദീപം തെളിയിക്കുന്ന ഇന്നത്തെ പരിപാടിമൂലം വൈദ്യുതി വിതരണ ശൃംഖല യിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നടപടിയെടുത്ത തായി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു വൈദ്യുതി വിള ക്കുകൾ ഒരുമിച്ച് അണക്കുമ്പോൾ ഗ്രിഡിൽ തകരാർ ഉണ്ടാകുമെന്ന ആശങ്കയെത്തുടർന്നാണ് വിശദീകരണം ഒരുമിച്ച് വിളക്കുകൾ അണയ്ക്കുമ്പോൾ വോൾട്ടേജ് കൂടി ഉപകരണങ്ങൾക്ക് കേടുണ്ടാകുമെന്ന് പല കോണു കളിൽനിന്നും അഭ്യൂഹം ഉയർന്നിരുന്നു

തെരുവ് വിളക്കുകൾ ഓഫാക്കേണ്ടതില്ല ഫ്രിഡ്ജുകളും മറ്റ് വൈദ്യുതി ഉപകരണങ്ങളും നിർത്തേ ണ്ടതില്ലെന്നും മന്ത്രാലയം അറിയിച്ചു ആശുപത്രികളി ലെയും മറ്റ് അവശൃ വിഭാഗങ്ങളിലെയും ലൈറ്റുകൾ ഈ സമയത്ത് പ്രവർത്തിപ്പിക്കാം

ജെ പി സംസ്ഥാന്യ പ്രസി ഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കൊറോണ് പ്രതിരോധ ത്തിന് ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന് നടപടികൾ ജന ങ്ങൾ അംഗീകരിക്കുമ്പോൾ യു ഡി എഫ് നേതാക്കൾ എന്തിനെയും ഏതിനേയും എതിർക്കുകയാണെന്നും സുരേന്ദ്രൻ കോഴിക്കോട്ട് പ്രസ്താവനയിൽ പറഞ്ഞു

ഇതിൽ അഞ്ചുപേർ ദുബായിൽനിന്നും മൂന്നുപേർ നിസാ മുദ്ദീൻ തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചെ ത്തിയവരുമാണ്

നിലവിൽ കാസർകോട് കണ്ണൂർ സ്വദേ ശികളായ രണ്ടുപേർ ഉൾപ്പെടെ ഏഴുപേരാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്

ഇന്നലെ ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ പാലക്കാട് ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ഏഴായി

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി കെ

ജില്ലയിൽ ഇതോടെ കോവിഡ് ബാധിത രുടെ എണ്ണം ആറായി തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെ ടുത്ത് തിരിച്ചെത്തിയപ്പോൾ രോഗം ബാധിച്ച പുനലൂർ സ്വദേശിനിയുടെ ഭർത്താവിനാണ് രോഗം ബാധിച്ചത് ഇയാളും സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു

കോട്ടയം ജില്ലയിൽ ശനിയാഴ്ച മൂന്നുപേരെ കൂടി ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കി ഇതോടെ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം നാലായി

സക്കീന അറിയിച്ചു കൊറോണ നിയന്ത്രണങ്ങളല്ലാതെ മറ്റൊരു വഴിയും ഇല്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട കർശന നിലപാട് തുടരുമെന്നും മന്ത്രി എ

നാലുദിവസംകൊണ്ട് സംസ്ഥാനത്തെ അറുപത്തി മൂന്നര ശതമാനം കുടുംബങ്ങൾ കോവിഡ് ് സൌജന്യ റേഷൻ വാങ്ങിയതായി മന്ത്രി പി

സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കോവിഡുമായി ബന്ധ പ്പെട്ട വ്യാജ വാർത്തകൾ നിർമ്മിക്കുകയും പ്രചരിപ്പി ക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടു ക്കുമെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി രണ്ടിലേറെ തവണ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ ഫോട്ടോ മാധ്യ മങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കും

യേശു ക്രിസ്തു വിന്റെ പ്രജറു സലേം യാത്രയുടെ വിശ്വാസ സ്മരണിയിൽ ഇന്ന് ഓശാന ഞായർ ലോക്ഡൌൺ പ്രോട്ടോകോൾ മുൻനിർത്തി ദിനാചരണം ചടങ്ങുകളിലൊതുക്കാനാണ് തീരുമാനം